നിക്ഷേപകർക്ക് വിശ്വാസ്യതയോടെ ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അന്താരാഷ്ട്ര യാത്രക്കാർക്കായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

ബീഹാറിൽ അവസാനഘട്ട നിയ്മസ്ന്ഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അവസാനിച്ചു

എല്ലിൽ ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി കൃാപിറ്റൽസും ഏറ്റുമുട്ടുന്നു

നിക്ഷേപക സൌഹൃദ പദ്ധതികളാണ് ഇന്ത്യ എന്നും സ്വീകരിച്ചിട്ടുള്ളത് ആഗോള ഉത്പാദക രാജ്യമാകാനുള്ള മാനവ ശേഷി ഇന്ത്യക്കുണ്ട് വെർച്ചൽ ആഗോള നിക്ഷേപക വട്ടമേശ സമ്മേളനത്തിന് അദ്ധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അന്താരാഷ്ട നിക്ഷേപക വളർച്ച ത്വരിതപ്പെടുത്താൻ സമ്മേളനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ആറ് ട്രില്ല്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ് സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ വെർചൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

എസ് യൂറോപ്പ് കാനഡ കൊറിയ ജപ്പാൻ മധ്യേഷ്യ ഓസ്ട്രേലിയ സിംഗപ്പൂർ എന്നീ മേഖലകളെ പ്രതിനിധാനം ചെയ്തുള്ള നിക്ഷേപകർക്ക് പുറമെ ഇന്ത്യൻ നിക്ഷേപകരും സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്

ഇന്ത്യയിൽ നിക്ഷേപം കമ്പനികൾക്ക് തദ്ദേശീയവ്യവസായ പ്രമുഖരോട് ബന്ധം സ്ഥാപിക്കാനുള്ള അവസരവുമാണ് സമ്മേളനം

വ്ളരെ കുറച്ചപേർക്ക് മാത്രമേ ചടങ്ങ് നടക്കുന്ന ഹാളിൽ പ്രവേശനം അനുവദിച്ചിട്ടുഉള്ളു

വിമാനം ഇറങ്ങിയ ശേഷം വിമാനത്താവളത്തിലെ ഹെൽത്ത് കൌണ്ടറിൽ ചെന്നും യാത്രക്കാർക്ക് ഫോം പൂരിപ്പിക്കാവുന്നതാണ്

എന്നാൽ കണ്ടെയ്ൻമെന്റ് സ്ോണുകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയില്ല സന്ദർശകർ നിർബന്ധമായും ശാരീരിക അകലം പാലിക്കേണ്ടതും മാസ്ക് ധരിക്കേണ്ടതുമാണ്

പടിഞ്ഞാറൻ ചമ്പാരൻ ജില്ലയിലെ ലോക് സഭാ മണ്ഡലമായ വാൽമീകി നഗറിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കുന്നുണ്ട്

ജെ

ഒപ്പം അഞ്ച് മണ്ഡലങ്ങളിൽ വികാസ് ശീൽ ഇൻസാൻ പാർട്ടിയും ഒരു സൌറ്റിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജിതൻ റാം മഞ്ച്ഹിയുടെ നേതൃത്പത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും മത്സരിക്കുന്നു

പ്രചാരണത്തിന്റെ അവസാന ദിനമായിരുന്ന ഇന്ന് നടന്ന വിപുലമായ റാലികളിലും പൊതുയോഗങ്ങളിലും വിവിധ പാർട്ടികളിലുള്ള മുതിർന്ന നേതാക്കളടക്കമുള്ളവർ പങ്കെടുത്തു ന്യുസ് ഡെസ്ക് ആകാശവാണി

കാലാവസ്ഥ വൃതിയാനം സംബന്ധിച്ച് ന്യുഡൽഹിയിൽ നടന്ന ചർച്ചയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുന്നതിനും വിദേശശക്തികളുടെ വെല്ലുവിളികളിൽ നിന്നും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിനും ആണ് പ്രഥമ പരിഗണന എന്ന് അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡിഫൻസ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കർത്താപൂർ സാഹിബ് ഇടനാഴിയുടെയും സിഖ് സമുദായത്തിന്റെ മതപരമായ ചൈതനൃത്തെയും ഈ നടപടി പ്രതികൂലമായി ബാധിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സിഖ് സമുദാ്യത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതായി കാണിച്ച് സിഖ് സമുദായത്തിൽ നിന്നും ഇന്ത്യയ്ക്ക് നിവേദനം ലഭിച്ചിരുന്നു പാകിസ്താന്റെ ഏകപക്ഷീയമായ ഈ നടപടി പിൻവലിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഇനിയും അന്തിമ ഫലം അറിഞ്ഞിട്ടില്ലാത്ത പെൻസീൽവാനിയ നോർത്ത് കരോളിന ജോർജിയ അരിസോണ് എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്

മൺപാത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുട വരുമാനം വർധിക്കാൻ ഇത് സഹായകമായിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ആരംഭിച്ച വിൽപ്പനയിലൂടെ ഇതുവരെ പതിനായത്തോളം മൺചിരാതുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്

ടോസ് നേടിയ ഡൽഹി മുംബൈയെ ബാറ്റിംഗിനയച്ചു

അതെ സമയം തോൽക്കുന്ന ടീമിന് നാളെ നടക്കുന്ന രണ്ടാം പ്ളേഓഫ് മത്സരത്തിൽ ജയിക്കുന്ന ടീമുമായി മത്സരിച്ച് ഫൈനലിൽ പ്രവേശിക്കാൻ ഒരു അവസരം കൂടിയുണ്ട്